മഴയ്ക്കും സാധൃതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ട്

ദുരിതാശ്ചാസ ക്യാമ്പുകൾ തുറന്നു

നാല് ജില്ലകളിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു തിരുവനന്തപുരം എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് ട്രിപ്പിൾ ലോക്ഡൌൺ രോഗസ്ഥിരീകരണ നിരക്ക് ഉയരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ നീട്ടാൻ തീരുമാനിച്ചത് ഭക്ഷ്യകിറ്റ് വിതരണം അടുത്തമാസവും തുടരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

കുടുംബശ്രീവഴി മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം പദ്ധതി ആരംഭിക്കും

വസ്തു നികുതി ടൂറിസം നികുതി എന്നിവ അടയ്ക്കാനുള്ള കാലാവധി നീട്ടും

നാളെ പുലർച്ചയോടെ കർണാടക തീരത്ത് ടൌട്ടെ ചുഴലിക്കാറ്റായി മാറുമെന്നാണ് സൂചന വടക്കൻ കേരളത്തിൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനമുണ്ടാകുമെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പു നൽകി

മീ

പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറുമായാണ് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ന്യൂനമർദം സ്ഥിതി ചെയ്യുന്നത്

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഇന്ന് വീണ്ടും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ കേരള തീരത്ത് കടലിൽ പോകുന്നതിന് ദുരന്ത നിവാരണ അതോറിറ്റി വിലക്കേർപ്പെടുത്തി

ഇന്ന് കോട്ടയം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലിക്ളിലും നാളെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഏറ്റണ്ടാകുളം ഇടുക്കി തൃശൂർ ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു

തിരുവനന്തപുരത്ത് കരമനയാറും കിള്ളിയാറും കരകവിഞ്ഞ് ഒഴുകിയതോടെ കാലടി ജഗതി പ്രദേശങ്ങളിലെ വീടുകളിൽ വെള്ളം കയറി

നഗരപ്രദേശത്ത് വയലുകളോട് ചേർന്ന പ്രദേശങ്ങളിലെ വീടുകളിലാണ് കൂടുതലും വെള്ളം കയറിയത് തിരുവനന്തപുരം കൊല്ലം തീരങ്ങളിൽ മത്സ്യബന്ധനം പൂർണമായും നിലച്ചു

തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂർ കൊല്ലം ജില്ലയിലെ പരവൂർ ആലപ്പാട് മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തെക്കൻ ജില്ലയിൽ ഇന്ന് നടത്താനിരുന്ന വാക്സിനേഷൻ ക്യാംപുകൾ റദ്ദാക്കി

പത്തനംതിട്ട പന്തളം കരിങ്ങാലി പുഞ്ചയിൽ വെള്ളം കയറി വൃാപക കൃഷി നാശമുണ്ടായി

തലശ്ശേരിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മൂന്നംഗസംഘം തിരിച്ചെത്തിയില്ല കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

ശക്തമായ കാറ്റിലും മഴയിലും എറണാകുളം ജില്ലയിൽ നാലു ദുരിതാശ്ചാസ കൃാമ്പുകൾ തുറന്നു കൊച്ചി താലൂക്കിൽ മൂന്നും കണയന്നൂർ താലൂക്കിൽ ഒരു ക്യാമ്പുമാണ് തുറന്നത്

കോഴിക്കോട് ന്യൂനമർദ്ദം കോഴിക്കോട് ജില്ലയിൽ ന്യൂനമർദ്ദം ശക്തിപ്പെട്ടതിന്റെ ഫലമായി കടൽക്ഷോഭം രൂക്ഷമായ സാഹചര്യത്തിൽ കാലവർഷക്കെടുതികൾ തടയാൻ താഴ്ന്ന പ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലും മുൻകാലങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടായ പ്രദേശങ്ങളിലും ആളുകളെ മാറ്റിപാർപ്പിക്കാൻ ക്യാമ്പുകൾ തുടങ്ങുന്നതിന് വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി

പുതുമുഖങ്ങളോടൊപ്പം നിലവിലെ മന്ത്രിസഭയിലെ അംഗങ്ങളും പരിഗണനയിലുണ്ടെന്നാണ് സൂചന മന്ത്രിസ്ഥാനവും വകുപ്പ് വിഭജനവും സംബന്ധിച്ച് സി